ബ്രൂ വിഭാഗം അഭയാർത്ഥികളെ ത്രിപൂരുയിൽ പാർപ്പിക്കാൻ കരാർ ഉണ്ടാക്കിയതിനെ പ്രധാനമന്ത്രി നശ്രീന്ദ്മോദി സ്ഥാഗതം ചെയ്തു

നാല് ദിവസമായി അടച്ചിട്ടിരിക്കുകയായിരുന്ന ജമ്മു ശ്രീനഗർ ദേശീയപാത ഗതാഗതത്തിനായി തുറന്നു

ഇന്ത്യാ ഓസ്ട്രേലിയ ഏകദിന പരമ്പരയിലെ രണ്ടാം മൽസരം ഇന്ന് രാജ്കോട്ടിൽ

ഏരിയൻ

കൂടുതൽ മികവാർന്ന ടെലിവിഷൻ വാർത്താ വിതരണ വിനിമയ പ്രക്രിയകൾക്ക് ഉപഗ്രഹത്തിന് മെച്ചപ്പെട്ട സേവനം നൽകാനാകുമെന്ന് ഐ എസ് ആർ

എസ് ആർ

ആർ

ന്യൂസ് ഡെസ്ക് ആകാശവാണി

കോഴിക്കോട് ഐ

ഹിംസ ഭീകരവാദം ക്രോധം എന്നിവയിൽ നിന്നും മാറ്റം ആഗ്രഹിക്കുന്ന ലോകത്തിന് ഇന്ത്യൻ ജീവിതരീതികൾ പ്രകാശം പകരുന്നതായും ശ്രീ

തർക്കങ്ങൾ ഒഴിവാക്കുന്നതിൽ ഹിംസയുടേതല്ല മറിച്ച് ചർച്ചകളുടെ പാതയാണ് ഇന്ത്യൻ രീതി സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭ്യമാക്കാൻ പാശ്ചാത്യർക്ക് പതിറ്റാണ്ടുകൾ വേ ണ്ടിവന്നപ്പോൾ സ്വാതന്ത്ര്യാനന്തര കാലം മുതൽ തന്നെ ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം ഉണ്ടായിരുന്നുവെന്ന് ശ്രീ

ലോക ജനതയ്ക്ക് നിരവധി ആദർശങ്ങൾ പ്രദാനം ചെയ്ത ഇന്ത്യൻ ചിന്താധാരയ്ക്ക് ഇനിയും ധാരാളം സംഭാവനകൾ നൽകാനാകുമെന്ന് പ്രധാനമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി പകർന്നു നൽകിയ സമാധാനത്തിന്റെ മൂല്യങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് സൌഹാർദവും നീതിയും സേവന തൽപരതയും തുറന്ന മനസ്ഥിതിയുമാണ് ഇന്ത്യൻ ജീവിത രീതിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

മിസോറാമിൽ നിന്നുള്ള ബ്രൂ വിഭാഗത്തിന് ഗവൺമെന്റിൽ നിന്നുള്ള നിരവധി ആനുകൂല്യങ്ങൾ ഇനി ലഭ്യമാകും

കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യത്തിൽ ത്രിപുര മുഖ്യമന്ത്രി ബിപ്സവ് കുമാർ ദേബ് മിസോറാം മുഖ്യമന്ത്രി സോറം താങ്ങ്ഗ എന്നിവരാണ് കരാർ ഒപ്പിട്ടത്

കാലങ്ങളൂയി പരിഹരിക്കപ്പെടാത്ത വിഷയമാണ് തീർപ്പായതെന്നും ശ്രീ

വടക്കു കിഴക്കൻ മേഖലയിലെ സമാന വിഷയങ്ങളും പരിഹ്രിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു

ന്യൂസ് ഡെസ്ക് ആകാശവാണിക്

കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിലെ ചദാർ മേഖലയിലേക്ക് പോയ പർവതാരോഹക സംഘമാണ് പ്രതികൂല കാലാവസ്ഥ മൂലം കൂടുങ്ങിയത് ലഡാക്ക് ഭരണകൂടവും കരസേനയും ദുരന്ത നിവാരണ വിഭാഗവും രണ്ടു ദിവസമായി രക്ഷാപ്രവർത്തനത്തിലാണ് വനിത ഉൾപ്പെടെയുള്ള പർവതാരോഹക സംഘത്തിന് ആവശ്യമായ ചികിത്സ നൽകി ഈ പ്രദേശത്ത് നദികൾ തണുത്തുറഞ്ഞ നിലയിലാണ് കുടുങ്ങിക്കിടക്കുന്ന മറ്റുള്ളവരെ കൂടി രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ്

കനത്ത മഞ്ഞുവീഴ്ചയും മണ്ണിടിച്ചിലും മൂലമാണ് പാത അടച്ചത് ജമ്മു കാശ്മീർ മേഖലയെ പുറം ലോകവുമായി ബന്ധിച്ചിരുന്ന ഏക റോഡുമാർഗമാണിത് ജവഹർ തുരങ്കത്തിലും ബനിഹാൾ റമ്പാൻ മേഖലയിലുമാണ് മണ്ണിടിച്ചിലുണ്ടായത്

ജെ പി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ പി പ്രസിഡന്റ് അമിത്ഷാ വർക്കിംഗ് പ്രസിഡന്റ് ജെ

നദ്ദ തുടങ്ങിയവർ സംബന്ധിച്ചു

ലഭിച്ചവയിൽ മിക്കതിലും ഡൽഹിയിലെ പ്പെള്ള്ക്കെട്ട് തകർന്ന റോഡുകൾ മലിനീകരണം കുടിവെള്ളിപ്പിത്ര്ണത്തിലെ പ്രശ്നങ്ങൾ തൊഴിലില്ലായ്മ എന്നിവയെ ആസ്പദമാക്കിയു്ള്ളവയാണെന്ന് പാർട്ടി ഘടകം പ്രസിഡന്റ് മനോജ് തിവാരി പറഞ്ഞു മേരി ദില്ലി മേരി സുജ്ഹാവ് എന്ന പേരിൽ യജ്ഞത്തിന് ഈ മാസം ആദ്യമാണ് തുടക്കം കുറിച്ചത്

അടുത്ത വ്യാഴാഴ്ചത്തെ പൊതു വിപണി ഇടപെടലുകളുടെ ഭാഗമായിട്ടായിരിക്കും ഇത് നടത്തുകയെന്ന് ആർ ബി

യോഗ്യരായിട്ടുള്ളവർക്ക് ആർ ബി

കൃഷി ഭക്ഷ്യ വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വിദ്യാർത്ഥികൾക്കും അനുബന്ധ മേഖലയിലുള്ളവർക്കും ഗുണകരമാണ് ഉച്ചകോടിയെന്ന് ഐ

എം അധികൃതർ അറിയിച്ചു

സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ കുറിച്ചുള്ള കൃതിയാണിത്

കോടതികളിൽ ഇംഗ്ലണ്ടിലെ രാജ്ഞിയെ പ്രതിനിധാനം ചെയ്യുന്ന അഭിഭാഷകനാണ് ക്യൂൻസ് ക്യൂൺസൽ

അമേരിക്കൻ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്ട്സ് വിചാരണ നടപടികൾക്ക് മേൽനോട്ടം വഹിക്കും ചൊവ്വാഴ്ച വിചാരണ നടപടികൾ ആരംഭിക്കുമെന്ന് സെനറ്റർ മിച്ച് മാക് കോണൽ അറിയിച്ചു

എസ് പാർലമെന്റ് ഇന്റലിജെന്റ്സ് കമ്മറ്റി ചെയർമാൻ ആഡം ഷിഫ് ആണ് വിചാരണ കമ്മറ്റി തലവൻ അധികാരം ദൂർവിനിയോഗം ചെയ്തുവെന്ന പരാതിയിലാണ് ട്രംപിനെതിരെ വിചാരണ നടപടികൾ ആരംഭിച്ചത്

ശീതകാറ്റുമൂലം ഇന്ന് മിക്ക ജില്ലകളിലും സ്കൂളുകൾക്ക് അവധി നൽകി സംസ്ഥാനമാകെ ഇന്ന് ആകാശം മേഘാവൃതമായിരിക്കുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു